ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം രാവിലെ യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിനുവെക്കും

ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ എൽ ഡി എഫും യു ഡി എഫും സ്വീകരിച്ച നിലപാടുകൾ ലജ്ജാകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിലയിരുത്തി ഇക്കാര്യത്തിൽ എൽ ഡി എഫിന്റെയുംസി പി ഐ എമ്മിന്റെയും സമീപനം ഒരുപാർട്ടിയും ഒരു ഗവൺമെന്റും സ്വീകരിക്കാത്ത തരംതാണ നടപടിയാണെന്ന് അദ്ദേഹം കൊല്ലത്ത് എൻ ഡി എ മഹാസമ്മേ ളനം ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു പാർലമെന്റിൽ ഒന്നും പത്തനംതിട്ടയിൽ മറ്റൊന്നും പറയുന്ന വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിന്റേത് ഇക്കാര്യം ജന ങ്ങൾക്ക് ബോധ്യപ്പെട്ടതായും നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ബി ജെ പി ആദ്യം സ്വീകരിച്ച നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ്

കേരളത്തിനും അതിന്റെ സംസ്കാരത്തിനും ഒപ്പമാണ് പാർട്ടിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇരുമു ന്നണികളും കേരളത്തിന്റെ സമുദായ സൌഹാർദ്ദത്തെയും സന്തോഷത്തെയും അഴിമതിയുടെയും വർഗ്ഗീയ വാദത്തിന്റെയും ബന്ദികളാക്കി മാറ്റിയെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും എന്ന് അദ്ദേഹം പറഞ്ഞു

ഇത്തരം ഒരു പാർട്ടിയെ മുന്നണിയിൽ തുടരാൻ അനുവദിക്കുന്ന കോൺഗ്രസിന്റെ സമീപനം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി

അതുതന്നെയായിരിക്കും കേരളത്തിലെയും അനുഭവമെന്ന് മോദി വ്യക്തമാക്കി ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫി നെയും വിമർശിച്ച പ്രധാനമന്ത്രിക്കെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും രംഗത്തുവന്നു പ്രധാനമന്ത്രി സംസ്ഥാന ഗവൺമെന്റിനെയും പാർട്ടിയെയും കുറ്റപ്പെടുത്തുന്നതിനുപകരം ഭരണഘടന വായിക്കുകയാണ് വേണ്ടതെന്ന് സി പി ഐ എം നേതൃത്വം ട്വിറ്ററിൽ കുറിച്ചു സുപ്രീം കോടതി വിധി നടപ്പാ ക്കിയ ഗവൺമെന്റിനെതിരെയാണ് പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു ശബരിമലയെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് ബി ജെ പി എടുത്ത തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ കൊല്ലം പ്രസംഗമെന്ന് കെ പ്രി സിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടു ത്തി യുവതികളുടെ ശബരിമലപ്രവേശനത്തെ ആദ്യം സ്വാഗതം ചെയ്തവ രാണ് ബി ജെപിയും ആർ എസ് എസും എന്ന് മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു ് ് ് ് ് ് ് ് കേരളത്തിലെ ആത്മീയ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് രൂപീകരിച്ച സ്വദേശ് ദർശൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്ത പുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു പത്മനാഭസ്വാ മിക്ഷേത്രം ആറന്മുള ശബരിമല പദ്ധതികൾ സ്വദേശ് ദർശനിൽ ഉൾപ്പെടു ത്തിയിട്ടുണ്ട് ചടങ്ങിനുശേഷം പ്രധാനമന്ത്രി ക്ഷേത്രദർശനവും നടത്തി ക്ഷേത്ര ത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണ റായി വിജയൻ കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം പിമാരായ സുരേഷ്ഗോപി വി മുരളീധരൻ ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവരും മറ്റു ജനപ്രതിനിധികളും ചേർന്ന് സ്വീക രിച്ചു

ബിജെപിക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ശബരിമല കോടതിവിധിയെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് അതിന് ബിജെപിക്ക് ശേഷിയില്ലെന്ന് കോടിയേരി പറഞ്ഞു

സി എ കുഞ്ഞുമോൻ സ്മാരകമന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചങ്ങരംകുളത്ത് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി

പ്രൊഫസർ വി ടി രമയാണ് പത്താം ദിവസവും നിരാഹാരം തുടരുന്നത്

കണ്ണൂരിൽ നിന്ന് എട്ടംഗ സംഘത്തോടൊപ്പം എത്തിയ രണ്ട് യുവതി കളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ് അഞ്ച് പ്രതി ഷേധക്കാരെ പൊലീസ് അറസ്റ്റ് ചെയ്തു പ്രതം നോറ്റാണ് ശബരിമല ദർശന ത്തിനെത്തിയതെന്നും ദർശനം നടത്താതെ മടങ്ങില്ലെന്നും യുവതികൾ അറി യിച്ചു ഇവരെ പിന്തിരിപ്പിക്കാൻ പൊലീസ് ശ്രമം നടത്തിവരികയാണ്

പത്മകുമാർ ശബരിമലയിൽ പറഞ്ഞു ദുരുദ്ദേശപരമായ രാഷ്ട്രീയ പ്രചാരണത്തെ തുടർന്നാണ് ശബരിമലയിലെ വരുമാനത്തിൽ ഇത്തവണ കുറവുണ്ടായതെന്നും ഇത് പരിഹരിക്കാൻ ഗവണ്മെ ന്റിന്റെ സഹായം ലഭിക്കുമെന്നും പത്മകുമാർ പറഞ്ഞു

ഇന്നലെ വൈകിട്ട് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കവടിയാറിലെ വീട്ടിലെത്തിച്ചു ഇന്നുരാവിലെ ഒമ്പതരയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഭൌതികശരീരം പൊതുദർശനത്തിനുവെക്കും തുടർന്ന് പത്തരയോടെ കലാഭ വൻ തിയേറ്ററിൽ പൊതുദർശനത്തിനും വെയ്ക്കും ഉച്ചയ്ക്ക് ഒന്നേമുക്കാൽ വരെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടകയിലെ കോൺഗ്രസ് ജെ ഡിപ്പ എസ് സഖ്യ ഗവൺമെന്റിനെ താഴെയിറക്കാൻ ബി ജെ പി കുതിരക്കച്ചവടം നടത്തുകയാ ണെന്ന് കർണാടകത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ കുറ്റപ്പെടുത്തി എന്നാൽ കർണാടക യിൽ ഗവൺമെന്റിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് വേണുഗോപാൽ വ്യക്തമാക്കി സഖ്യ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയ ദിവസം മുതലേ അവരെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ശ്രമം തുടങ്ങിയെന്നും വേണുഗോ പാൽ പറഞ്ഞു

ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശകളുടെ ആനുകൂല്യം സംസ്ഥാന ഗവൺമെന്റുകൾക്കു കീഴിലെ അധ്യാപകർക്കും മറ്റു അക്കാഡമിക് ജീവനക്കാർക്കും ബാധകമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി ഗവൺമെന്റ് എയ്ഡഡ് ടെക് നിക്കൽ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശുപാർശകൾ ബാധകമാണ്

കേന്ദ്രമന്ത്രി ഡോ ഹർഷ് വർധൻ ചാനലുകൾ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു

പദ്ധതി യിലെ ഫണ്ട് ക്ഷാമത്തെപറ്റി പ്രധാനമന്ത്രിക്ക് വിവിധ രംഗങ്ങളിലെ പ്രമുഖർ നൽകിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടെ കഴിഞ്ഞ നാലുവർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് അനുവദിക്കുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം ഡൽഹിയിൽ അറിയിച്ചു

കോസ്റ്റ് ഗാർഡ് വിമാനങ്ങളും തെരച്ചിലിൽ പങ്കെടുക്കു ന്നുണ്ട്

കെഎസ്ആർടിസി ജീവനക്കാർ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം ഒഴിവാക്കാൻ ഇന്ന് ചർച്ചു

പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കുക ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് ഇന്ന് അർദ്ധരാത്രിമുതലാണ് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്

മലയാളി ഫുട്ബോൾ താരം അനസ് എടത്തൊടിക രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു ഏഷ്യൻ കപ്പ് ഫുട്ബോളിലെ ഇന്ത്യയുടെ പരാജയത്തിന് തൊട്ടുപിന്നാലെയാണ് അനസിന്റെ വിരമിക്കൽ പ്രഖ്യാപനം

ഭക്ഷ്യ പൊതുവി തരണ രംഗത്തെ സമഗ്രമായി മാറ്റിയ ഇ പോസ് മെഷീനുകളെകുറിച്ചും ദേശീയ ഭക്ഷ്യഭദ്രതാനിയമത്തെകുറിച്ചും പൊതുവിതരണ രംഗത്തെ നല്ല മാറ്റങ്ങളെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ദിനാചരണം ് ് ജെ എൻ യു വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കോടതിയിൽ കുറ്റപത്രം നൽകിയ കേന്ദ്ര നടപടി ചെറുത്തുനില്പു കളെ നിശ്ശബ്ദമാക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് മുസ്തിം ലീഗ് ദേശീയ ജന റൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി

് ് ് ് ് ് മട്ടന്നൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കുറ്റം ചെ യ്യുന്നവരെ കണ്ടെത്താനും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങി നൽകാനും സി സി ടി വി ക്യാമറ ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകൾ വഴി സാധി ക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ഗവൺമെന്റ് ധനസഹായം കാലതാമസം കൂടാതെ വിതരണം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു വിവാഹ സഹായം വൈകാതെ നൽകണമെന്നാ വശ്യപ്പെട്ട് സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകിയ നിവേദനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി

ഏഷ്യൻ അഗ്രി ഹിസ്റ്ററി ഫൌണ്ടേഷന്റെ പ്രഥമ ഡോ

നെനെ സ്മാരക സംസ്ഥാന വൃക്ഷായുർവ്വേദ മാധ്യമ അവാർഡിന് ആകാശവാണി കണ്ണൂർ നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പി

കിസാൻവാണി പരിപാടിയിലൂടെ വൃക്ഷായുർവ്വേദ കൃ ഷിരീതിയെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയതിനാണ് പുരസ്കാരം